രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കൊൽക്കത്തയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും

സൈബർ കുറ്റകൃതൃങ്ങൾ ത്ടയ്യുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ കേന്ദ്രം ഗുജറാത്തിലെ ഗാന്ധി നഗറിൽ കേന്ദ്രമന്ത്രി അമിത്ഷാർഉദ്ഘാടനം ചെയ്തു

ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ആദ്യ ദിനം മഹാരാഷ്ട്രയ്ക്ക് മുന്നേറ്റം

വിമാനത്താവളത്തിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ജഗദീപ് ധങ്കാർ കൊൽക്കത്ത മേയർ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു പശ്ചിമബംഗാളിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും

പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബ്രാ്നർജി പ്രധാനമന്ത്രിയുമായി രാജ്ഭവനിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിട്ട് ് രാജ്യമൊട്ടാകെ ഉണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നും മമതബാന്റർജീപ്രപ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു അതിനിടെ പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് ചേരുന്ന പ്രതിപ്ക്ഷ കക്ഷികളുടെ യോഗത്തിൽ നിന്നും പിൻമാറിയതിന് മമതയെ കോൺഗ്രസ് വിമർശിച്ചുട്ടു കോൺഗ്രസ് അധ്യക്ഷ സോണിയഗാന്ധി തിങ്കളാഴ്ച ഡൽഹിയിലാണ്ട് യോഗം വിളിച്ചത്

ഭാരതീയ വിചാര കേന്ദ്രം മുപ്പത്തി ഏഴാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എതിർക്കാനുള്ള ഒരു വകുപ്പും പൌരത്വ ഭേദഗതി നിയമത്തിൽ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കും അഭിപ്രായ വൃത്യാസമില്ലാത്തതാണ് നിയമ ഭേദഗതിയെന്നും മന്ത്രി പറഞ്ഞു

ഗുജറാത്ത് പോലീസിന്റെയും ഭാരതീയ പോസ്റ്റൽ വകുപ്പിന്റെയും നിരവധി ജനകീയ പദ്ധതികളും അദ്ദേഹം ഗാന്ധി നഗറിലെ മഹാത്മാമന്ദിറിൽ ഉദ്ഘാടനം ചെയ്തു നിയമവാഴ്ചയുടെ പൂർണതയ്ക്ക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു സംസ്ഥാനത്ത് കുറ്റകൃതൃങ്ങൾക്ക് തടയിടാൻ വിശ്വാസ് ആശ്വസ്ത് പദ്ധതികൾ നിർണായക് പങ്കുവഹിക്കുമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു

ഇതോടെ വിമാനവാഹിനി കപ്പലിൽ ഉപയ്യോഗിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർണായ്കൂകടമ്പയും ഇന്ത്യ മറികടന്നു

കമാൻഡർ ജയ്ദീപ് മോളങ്കറാണ് പരീക്ഷണ സമയത്ത് തേജസ് വിമാനം പറത്തിയതെന്ന് ഡിആർഡിഒയുടെ പ്രസ്താവനയിൽ അറിയിച്ചു പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിനെ പ്രതിരോധമന്ത്രി രാജ് നാഥ് സിങ് അഭിനന്ദനമറിയിച്ചു എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ഡിആർഡിഒയും ചേർന്നാണ് തേജസ് വിമാനത്തിന്റെ നാവികസേനാ പതിപ്പ് വികസിപ്പിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെറിയ റൺവേയിൽ ലാൻഡ് ചെയ്യിക്കുന്ന അറസ്റ്റഡ് ലാൻഡിങ് പരീക്ഷണം തേജസ് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഗോവയിലെ പരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഈ പരീക്ഷണ ലാൻഡിങ് നടത്തിയത്

വലിയ ദുരന്തമാണ് നടന്നതെന്നും പൊറുക്കാനാകാത്ത തെറ്റാണ് സംഭവിച്ചതെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ് അനുശോചനം രേഖപ്പെടുത്തിയ പ്രസിഡന്റ് സംഭവത്തെ കുറിച്ചു കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും അറിയിച്ചു

രാജ്യത്തിന്റെ സംസ്ക്കാരവു് ് സംഗീതപാരമ്പര്യവും ചരിത്രവും സംരക്ഷിക്കണമെന്നും അദ്ദേഹൃ ആഹ്വാനം ചെയ്തു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അദ്ധ്യാപകരും രക്ഷകർത്താക്കളും പരിപാടിയിൽ പങ്കെടുക്കും

ഇന്ന് ബംഗളൂരുവിലെ ആശുത്രിയിലാണ് ചിദാനന്ദ മൂർത്തി അന്തരിച്ചത്

കൊൽക്കത്തയിൽ പൂർവോദയ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് വടക്കൻ ആന്ധ്ര ഝാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിലെ അവികസിത ജില്ലകൾക്ക് ഉരുക്കു വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിൽ പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു

സുരക്ഷ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി നാവികസേനയുടെ ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തിയതിനെ തുടർന്ന് രണ്ടാമത്തെ സൈറൺ വൈകി അവസാനത്തെ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെയാണ് ആദ്യ ഫ്ളാറ്റിൽ സ്ഫോടനം നടത്തിയത്

സുരക്ഷിതമായാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് പൊളിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത കമ്പനിയുടെ മേധാവി ഉത്കർഷ് മേത്തെ പറഞ്ഞു

എന്നാൽ പ്രാഥമിക വിലയിരുത്തലിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

മുക്കം സാമൂഹികാരോഗ്യകേന്ദ്രത്തിൽ സജ്ജീകരി ച്ചിട്ടുള്ള കോൾ സെന്ററിൽ നിന്നും നിമ്പ്രീക്ഷണത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുവരികയാണ്

് ദീർഘകാലം ഒമാന്റെ ഭരണാധികാരിയാ യിരുന്ന ഖാബൂസ് ബിൻ സാ ഈദ് അൽ സെയ്ദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഹെയ്തം ഭരണസാരഥ്യം ഏറ്റെടുത്തത്

അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന സുൽത്താൻ ഇന്നലെയാണ് അന്തരിച്ചത്

ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്തരിച്ച സുൽത്താനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

്ഗ്രീസിനോട് ചേർന്ന പാക്സി എന്ന ദ്വീപിന് സമീപത്താണ് സംഭവം

ആഫ്രിക്കയിൽ നിന്ന് ഇറ്റലിയിലേയ്ക്ക് കുടിയേറാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം

ഇറാഖിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ് ശ്രേഷം ആദ്യമായാണ് ഒരു പ്രതിഷേധം നടക്കുന്നത്

അഞ്ച് സ്വർണവുമായി ഉത്തർപ്രദേശും നാല് സ്വർണവുമായി ത്രിപുരയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട്

കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഹോം മത്സരത്തിൽ ഗോൾഡൻ ത്രഡ്സിനെ മൂന്നിനതിരെ നാല്ഗോളുകൾക്കാണ് ഗോകുലം പരാജയപ്പെടുത്തിയത്